ഇന്ന് വിജയദശമി

തിരൂർ തൂഞ്ചൻ പറമ്പിലടക്കം സാംസ്കാരിക കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്ത് തുടങ്ങി വനം വകുപ്പിന്റെ ഇക്കൊല്ലത്തെ വനൃജീവി വാരാഘോഷത്തിന് ഇന്ന് സമാപനം

എസ് ആർ ടി

കോഴിക്കോട് കൂടത്തായി തുടർമരണങ്ങളിൽ ഫോറൻസിക് പരി ശോധന വിദേശത്ത് നടത്താൻ അനുമതി നൽകി

ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ളോറൻസ് ചാർലി ആദ്യ വിമാനം ഔപചാരികമായി ഇന്ത്യക്ക് കൈമാറും വിമാനത്തിൽ പരീക്ഷണ പറക്കൽ നടത്തുന്ന രാജ്നാഥ് സിങ് പിന്നീട് ഫ്രാൻസു മായി വാർഷിക പ്രതിരോധ സംഭാഷണവും നടത്തും ഇന്ന് വിജയദശമി

സരസ്വതീ സാന്നിധ്യം കൽപിക്കുന്ന ക്ഷേത്രങ്ങളിലും മറ്റു സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യാക്ഷരങ്ങൾ നാവി ലെഴുതിയും അരിയിലും മണലിലും ഹരിശ്രീ കുറിച്ചും ഗുരുനാ ഥൻമാർ തലമുറകളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കും ഭാഷാപിതാവിന്റെ മണ്ണിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ നിര വധി കുഞ്ഞുങ്ങളെത്തി തിരൂർ തുഞ്ചൻ പറമ്പിലെ കൃഷ്ണശി ലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശ്ശാൻമാർക്ക് പുറമെ സാ ഹിത്യകാരന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുട്ടികൾക്ക് ഹരിശ്രീ കുറിക്കുന്നു തുഞ്ചൻ സ്മാരക ഓഡിറ്റോ റിയത്തിൽ കവികളുടെ വിദ്യാരംഭവും നടക്കും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ജന്മഗൃഹമായ തിരുനാവായ കുറുമ്പത്തൂ രിലെ ഇല്ലത്തും വിദ്യാരംഭം തുടങ്ങി പെരിന്തൽമണ്ണക്കടുത്ത് പൂന്താനം ഇല്ലത്തും വള്ളത്തോളിന്റെ തിരൂ രിനടുത്ത ജന്മ വീട്ടിലും എടപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേ ത്രത്തിലുമടക്കം നിരവധി കേന്ദ്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നു കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിന് വിദ്യാ മണ്ഡപത്തിൽ വിദ്യാരംഭം തുടങ്ങി തൃശൂർ ചേർപ്പ് തിരുവള്ളക്കാവിലും വിദ്യാരംഭത്തിന് വൻ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും എഴുത്തിനിരുത്ത് ആരംഭിച്ചു അയ്യായിരത്തിലേറെ കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കാൻ രജി സ്ടർ ചെയ്തു കഴിഞ്ഞു വിജയദശമിക്ക് മൂകാംബികയിൽ വൻതിരക്ക് അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ട് പാലക്കാട് ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ അൽപ സമയ ത്തിനകം വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും കെടാ വിളക്കിൽ നിന്ന് നാടൃശാലയിലേക്ക് അക്ഷരദീപം പകരുന്നതോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങുന്നത് ചിറ്റൂർ തുഞ്ചൻ മഠത്തിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി

മിക്ക ക്ഷേത്രങ്ങളിലും വൻ തിര ക്കാണ് കണ്ണൂർ ജില്ലാ സെൻട്രൽ ലൈബ്രറിയിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എഴുത്തിനിരുത്തിന് നേതൃത്വം നൽകും വിജയദശമിയോട് അനുബന്ധിച്ച് കോഴിക്കോട് തളിശ്രീ മഹാഗണ പതി ശ്രീബാലസുബ്രമഹ്ണൃ ക്ഷേത്രത്തിൽ രാവിലെ എഴു ത്തിനിരുത്ത് തുടങ്ങും തിരുത്തിയാട് അഴകൊടി ദേവീക്ഷേത്ര ത്തിലും തളി ക്ഷേത്രത്തിലും എഴുത്തിനിരുത്ത് സംഘടിപ്പിച്ചി ട്ടുണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായി ഡുവും ജനങ്ങൾക്ക് ദസറ ആശംകൾ നേർന്നു സത്യത്തിന്റെയും നന്മയുടെയും വിജയമാണ് ദസറ ആഘോഷങ്ങളുടെ സന്ദേശ മെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സത്യസന്ധമായ ജീവിതത്തിനും മൂലൃങ്ങളുടെ സംര ക്ഷണത്തിനും ഇത്തരം ആഘോഷങ്ങൾ പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമാണ് ദസറ ആഘോഷമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഐക്യത്തിന്റെയും നന്മയുടെയും ആഘോഷമാണ് ദസറയെന്നും വെങ്കയ്യ നായിഡു സന്ദേശത്തിൽ അറിയിച്ചു

സംസ്ഥാനതല സമാപന സമ്മേളനം തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്തെ വനശ്രീ ഓഡിറ്റോറിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാജു അധ്യക്ഷനായിരിക്കും സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യക്കാരുടെ അക്കൌണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളുടെ ആദ്യഭാഗം രാജ്യത്തിന് ലഭിച്ചു ഇരു രാജ്യങ്ങളും ഒപ്പു വെച്ച വിവര കൈമാറ്റ കരാർ പ്രകാരമാണ് വിവരങ്ങൾ ലഭ്യ മായത്

രണ്ടാംഘട്ട വിവര കൈമാറ്റം അടുത്ത സപ്തംബറിൽ നടക്കും രാജ്യത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു

വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും അന്വേഷണ ഏജൻസി കളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്മിതിയിൽ അംഗങ്ങളാണ് ജമ്മു കശ്മീരിൽ വിനോദ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ കശ്മീർ ഭരണകൂടം തീരുമാനിച്ചു ഈ മാസം പത്ത്മുതൽ വിലക്ക് പിൻവലിക്കാൻ ഗവർണർ സത്യപാൽ മാലിക് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനിച്ചത് ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ഓഗസ്റ്റ് രണ്ടു മുതലായിരുന്നു ജമ്മു കശ്മീ രിൽ സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയത്

എസ് ആർ

സിയിൽ താൽകാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ട തിനെ തുടർന്ന് ഇന്നലെയുംസംസ്ഥാന വ്യാപകമായി ആയിരത്തി ലേറെ ട്രിപ്പുകൾ റദ്ദാക്കി നാളെ മുതൽ ദിവസ വേത്നത്തിന് കൂടു തൽ ഡ്രൈവർമാരെ നിയമിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാ നം അതിനിടെ കെ എസ്ആർ ടി സി ജീവനക്കാർക്ക് ശമ്പള വിത രണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സമരം ആരം ഭിച്ചത് ഇന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ്സൂചന

ഏഴ് മിനുട്ട് ഇടവിട്ട് ഇനി ട്രെയിനുകൾ ഓടിത്തുട ങ്ങും കോഴിക്കോട് കൂടത്തായി തുടർമരണങ്ങളിൽ ഫോറ്റൻസിക് പരിശോ ധന വിദേശത്ത് നടത്താൻ സംസ്ഥാന പൊലീസ് മേധാവി അനു മതി നൽകിയതായി വടകര റൂറൽ ജില്ലാ പൊലീസ് മേധാവി കെ ജി സൈമൺ അറിയിച്ചു

ജി പി നേരിട്ട് അന്വേഷണം നിരീക്ഷി ക്കും കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മൊഴികളും വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ അമ്പേഷണ പുരോഗതി വിലയിരുത്താൻ ഡി ഐ

സേതുമാധവൻ ജില്ലയിൽ എത്തിയിട്ടുണ്ട് ജോളിയുടെ വ്യാജ ഒസ്യത്തിൽ ഒപ്പിട്ട കോഴിക്കോട് കട്ടാങ്ങൽ ലോക്കൽ സെക്രട്ടറിയെ സിപിഐഎം പുറത്താക്കി പാർട്ടിയുടെ പേരിന് ദോഷം വരുത്തുന്ന വിധം പ്രവർത്തിച്ചുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ആലപ്പുഴ എസ് എൽ പുരത്തെ ഗാന്ധി സ്മാരക ഗ്രാമ സേവാ കേന്ദ്ര ത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും സമാ പന സമ്മേളനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നൂറിലേറെ കേസിൽ പ്രതിയും കുപ്രസിദ്ധ കുറ്റവാളിയുമായ സത്യദേവിനെ കേരള പൊലീസ് ഡൽഹിയിൽ പിടികൂടി കേരളത്തിൽ ആറ് മാല പൊട്ടിക്കൽ കേസിലെ പ്രതി യാണ് ഇയാൾ കൊല്ലം നഗരത്തിൽ തോക്ക് ചൂണ്ടി മാല കവ ട രുന്ന സംഭവ പരമ്പരയുടെ ആസൂത്രകൻ സത്യദേവായിരുന്നു ഇയാളുടെ കൂട്ടാളികളായ രണ്ടു യുവാക്കളായിരുന്നു ബൈക്കി ലെത്തി മാല പിടിച്ചു പറിച്ചിരുന്നത് ഡൽഹിയിൽ ഒരു കാർ സർവീസ് സെന്ററിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെയാണ് കൊല്ലം പൊലീസ് ഇയാളെ പിടികൂടിയത് കണ്ണൂർ ജില്ലാ ജയിലിൽ നിർമിക്കുന്ന കിണ്ണത്തപ്പത്തിന്റെയും പൂച്ചട്ടി കളുടെയും വിപണനം സംസ്ഥാന ജയിൽ മേധാവി ഋഷിരാജ് സിങ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും കണ്ണൂരിന്റെ കിണ്ണത്തപ്പം എന്ന പേരിൽ സെൻട്രൽ ജയിൽ കോമ്പൌണ്ടിലെ കൌണ്ടറിൽ ഇവ ലഭ്യമായിരിക്കും ഇടുക്കിയിലെ ചെറുകിട തേയില കർഷകർ നാളെ ടീബോർഡിന് മുന്നിൽ കൂടുംബത്തോടെ ഏകദിന നിരാഹാര സമരം നടത്തും പുതു കൃഷിക്കാർക്കും ആവർത്തന കൃഷിക്കാർക്കും സൊസൈ റ്റികൾക്കും വാഹനങ്ങളും യന്ത്രങ്ങളും വാങ്ങാൻ സബ്സിഡി നൽകുമെന്ന തീരുമാനം ആറു വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാ ത്തതിനെ തുടർന്നാണ് സമരം കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കെട്ടുകാള ഉ ത്സവം ഇന്ന് നടക്കും

കാളരൂപങ്ങൾ വൈകിട്ടോടെ പടനിലത്ത് അണിനിരക്കും ഉത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കുശേഷം ദേശീയപാതയിൽ പോ ലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ആവശ്യമാണെന്നാണ് പുതിയ തീരുമാനം

മനുഅശോകൻ സംവിധാനം ചെയ്ത ഉയരെ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത കോളാമ്പി ലിജോ ജോസ് പല്ലിശ്ശേ രിയുടെ ജെല്ലിക്കെട്ട് എന്നിവയാണ് മലയാളത്തിൽ നിന്ന് പനോ രമയിൽ ഇടം നേടിയത് പണിയ ഇരുള എന്നീ ഗോത്രഭാഷക ളിൽ മലയാളീ സംവിധായകർ ഒരുക്കിയ സിനിമകളും തെരഞ്ഞെ ടുക്കപ്പെട്ടിട്ടുണ്ട് സംവിധായകൻ പ്രിയദർശൻ അധ്യക്ഷനായ ജൂറി യാണ് സിനിമകൾ തെരഞ്ഞെടുത്ത്